കർഫ്യു ആചരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ജയിലിൽ തൂക്കിലേറ്റി

ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് സുപ്രീം കോടതി

കൊറോണ പ്രതിരോധം സംബന്ധിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഡോക്ടർമാർ ആരോഗ്യപ്രവർത്തകർ ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവർ നടത്തുന്ന സേവനത്തിന് ഞായറാഴ്ച വൈകിട്ട് അഞ്ച് മണിക്ക് എല്ലാ ജനങ്ങളും നന്ദി അറിയിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

കൊറോണ വ്യാപനത്തിന്റെ നിലവിലെ ഘട്ടത്തിൽ സാമൂഹ്യ അകലം പാലിക്കേണ്ടത് അനിവാര്യമാണ് നിശ്ചയദാർഢ്യവും ക്ഷമയുമാണ് കൊറോണ വ്യാപനത്തെ പ്രതിരോധിക്കാനുള്ളൂ മാർഗ്ഗം വ്യാപാര സ്ഥലങ്ങൾ ജനക്കൂട്ടമുള്ള പ്രദേശങ്ങൾ എസ്സിവിടങ്ങളിൽ അനാവശ്യമായി സഞ്ചരിക്കുന്നത് ശരിയ്ക്ക്യിസ്മീപനമല്ലെന്നും അത് മറ്റുള്ളവരെ കൂടി അപകടത്തിൽാക്ക്കുമെന്നും ശ്രീ

ആരോഗ്യ പ്രവർത്തകർക്ക് മേലുള്ള് സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് അത്യാവശ്യമല്ലാത്ത ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണം

ജീവനക്കാരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ വ്യാപാര സമൂഹം പരിഗണിക്കണമെന്നും ജോലിക്കെത്താൻ സാധിച്ചിട്ടില്ലെന്ന് കരുതി ജീവനക്കാരുടെ ശമ്പളം കുറയ്ക്കരുതെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു കോറോണയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക വെല്ലുവിളി നേരിടാൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അദ്ധ്യക്ഷതയിൽ പ്രത്യേക കർമ്മസേനയ്ക്ക് രൂപം നൽകാനും സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി അറിയിച്ചു

ജനപ്രതിനിധികൾ സർക്കാർ ജീവനക്കാർ മെഡിക്കൽ പ്രൊഫഷണലുകൾ എന്നിവരെ ഇതിൽ നിന്ന് ഒഴിവാക്കും

വിദ്യാർത്ഥികൾ രോഗികൾ ഭിന്നശേഷിക്കാർ എന്നിവർ ഒഴികെയുള്ള എല്ലാ ആനുകൂല്യ യാത്രകളും റെയിൽവേയും സിവിൽ വ്യോമയാന മന്ത്രാലയവും നിർത്തിവയ്ക്കും അവശ്യ സേവനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഒഴികെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കായി വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാൻ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന് സംസ്ഥാന സർക്കാരുകളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്

ആരോഗ്യം ഷിപ്പിങ്ങ് ആഭ്യന്തരം വ്യോമയാനം വിദേശകാര്യം തുടങ്ങിയ മന്ത്രിതല ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് ആരോഗ്യമന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു പൊതുജനങ്ങൾ ിക്രൂട്ടം കൂടുന്നത് ഒഴിവാക്കാൻ സാമൂഹ്യ അകലം പാലിക്കുന്ന്തിന്റുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു

കൂടാതെ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലെ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സ്ട്രൂ ജീവനക്കാർക്ക് ഒന്നിടവിട്ട ആഴ്ചകളിൽ ഓഫീസിലെത്തി ജ്യോലി ചെയ്യാനുള്ള നിർദ്ദേശവും നൽകിയതായി ശ്രീ

ഇത് ഒരു രാഷ്ട്രീയ വേദിയല്ല മാനുഷിക വേദിയാണെന്നും പാകിസ്ഥാൻ അത് ദുരുപയോഗം ചെയ്തെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ്കുമാർ പറഞ്ഞു കൊറോണ വൈറസ് ബാധയെ പ്രതിരോധിക്കാൻ വീഡിയോ കോൺഫറൻസിങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ച അടിയന്തര സാർക് ഫണ്ട് പ്രവർത്തനക്ഷമമാണെന്നും സഹായത്തിനായി ഇന്ത്യ അംഗരാജ്യങ്ങളിൽ നിന്ന് അഭ്യർത്ഥന സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത വാരാന്ത്യത്തിൽ ഇറ്റലിയിൽ നിന്ന് ഒരു സംഘം ഇന്ത്യാക്കാരെ കൂടി ഒഴിപ്പിക്കാൻ പദ്ധതിയിടുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു

ഇരുവരും അടുത്തിടെ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയവരാണെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു പൂനെ എൻ

രോഗബാധിതരുമായി സമ്പർക്കം പുലർത്തിയ എല്ലാവരെയും കണ്ടെത്താനും നിരീക്ഷണത്തിലാക്കാനും നടപടികൾ സ്വീകരിച്ചതായും ആരോഗ്യമന്ത്രാലയം ട്വിറ്ററിൽ അറിയിച്ചു

ഇന്ന് പുലർച്ചെ ഡൽഹിയില്ലെ തിഹാർ ജയിലിലാണ് പ്രതികളായ പവൻകുമാർ വിനയ് ശർമ്മൂ അക്ഷയ് ഠാക്കൂർ മുകേഷ് സിങ്ങ് എന്നീ കുറ്റവാളികളുടെ വധശിക്ഷ് നടപ്പാക്കിയത് വധശിക്ഷ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതികൾ സമർപ്പിച്ച ഹർജി ഇന്നലെ ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു

ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ജയിലായ തിഹാർ ജയിലിൽ ഇതാദ്യമായാണ് നാല് പ്രതികളെ ഒരുമിച്ച് തൂക്കിലേറ്റുന്നത്

ഭാവിയിൽ ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്നവർക്കുള്ള ശക്തമായ സന്ദേശമാണ് ശിക്ഷാവിധിയെന്ന് നിർഭയയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചു നിർഭയയ്ക്കും രാജ്യത്തെ കോടിക്കണക്കിന് സ്ത്രീകൾക്കും നീതി നടപ്പാക്കിയ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് അവർ നന്ദി അറിയിച്ചു

വിദ്യാഭ്യാസം ആരോഗ്യം കൃഷി അടിസ്ഥാന സൌകര്യം സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കൽ വിനോദസഞ്ചാരം തുടങ്ങിയവയ്ക്കാണ് ബജറ്റിൽ ഊന്നൽ നൽകിയിരിക്കുന്നതെന്ന് ധനവകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ശ്രീ

ഇരുവരും ഇപ്പോൾ ജയ്പ്പൂരിലെ എസ് എം

കോവിഡിനെ ചെറുക്കാൻ ഇതിനോടകം രാജസ്ഥാൻ സർക്കാർ നിരവധി മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്

ജെ പി നേതാവ് ശിവരാജ് സിങ്ങ് ചൌഹാൻ സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം മുൻ കോൺഗ്രസ് എം എൽ എ മാർ വിശ്വാസവോട്ട് നടപടികൾക്കായി എത്തുകയാണെങ്കിൽ അവർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് മധ്യപ്രദേശ് കർണാടക പോലീസ് മേധാവികൾക്ക് കോടതി നിർദ്ദേശം നൽകി

എൽ എ മാർ പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് മധ്യപ്രദേശിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തത്

സിന്ധ്യ കോൺഗ്രസ് വിട്ട് ബി ജെ പി അംഗത്വം സ്വീകരിക്കുകയായിരുന്നു

കേന്ദ്രമന്ത്രി സഭയുടെ അനുമതി ലഭിച്ചശേഷം ആഭ്യന്തര മന്ത്രാലയമാണ് ഇതു സംബന്ധിച്ച ഉത്തരവ് ജമ്മു കശ്മീർ ലഡാക് കാര്യ വകുപ്പിന് നൽകിയത്

ഇതുവരെ എട്ടു പേർക്കാണ് കേന്ദ്രഭരണിപ്പ്ദേശത്ത് കൊറോണ ബാധ സ്ഥിരീകരിച്ചത്

ഈ സാഹചര്യം കണക്കിലെടുത്താണ് പുതിയ ഉത്തരവ്

ജസ്റ്റിസ് ധർമാധികാരിയെ കഴിഞ്ഞ മാസം ഹൈക്കോടതിയുടെ ആക്ടിങ്ങ് ചീഫ് ജസ്റ്റിസായി നിയമിച്ചിരുന്നു